പൊതുപണം വിനിയോഗിക്കുന്നതും ജനസേവനം എത്രത്തോളം ലഭ്യമാകുന്നു എന്നതും ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ക്ഷേമപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ മുൻഗണാ ക്രമങ്ങളും അറിയേണ്ടതുണ്ട് രാഷ്ട്രവും ജനങ്ങളും തമ്മിൽ പരസ്പര വിശ്വാസം വളർത്താൻ വിവരാവകാശ നിയമ വ്യവസ്ഥ ഫലപ്രദമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

ഇ മാർക്കറ്റും ഇ ലേലവും ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചമൂലം ലഭ്യമായ സൌകര്യങ്ങളാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു സ്വകാര്യ വിവരങ്ങളും വിവരാവകാശ നിയമങ്ങളും വിവരാവകാശ നിയമത്തിലെ ഭേദഗതികൾ നിയമത്തിന്റെ നടപ്പാക്കൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നു നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ പ്രവർത്തകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ നാലാമത് വ്യവസായ വിപ്തവം സെന്റർ ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആന്താരാഷ്ട്രതലത്തിൽ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ് നാല്യാമത്തെ സെന്ററാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആർട്ടിഫീഷ്യൽ ഇന്റലിജന്റ്സ് മെഷീൻ ലേണിങ് ബിഗ് ഡേറ്റ എസ്സിൻ ഇന്ത്യയെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലെത്തിക്കുമെന്ന് പ്രശീ നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും വ്യവസായ വിപ്തവമല്ല മറിച്ച് സാമൂഹൃ പരിവർത്തനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മൂന്ന് ദിവസം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ദിനാചരണത്തിന്റെ ഭാഗമായി തപാൽ സ്റ്റാമ്പും പ്രത്യേക തപാൽ കവറും പുറത്തിറക്കുന്നുണ്ട്

വർദ്ധിച്ചുവരുന്ന അക്കൌണ്ട് കമ്മി കുറയ്ക്കുകയാണ് ലക്ഷ്യം വർദ്ധിച്ച നികുതി ഇന്നുമുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് അറിയിച്ചു

മധ്യപ്രദേശിലേയും രാജസ്ഥാനിലേയും വോട്ടർപട്ടിക ഈ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ്സ് നേതാക്കളായ കമൽനാഥും സചിൻ പൈലറ്റുമാണ് കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എ കെ സിക്രി ജസ്റ്റിസ് അശോക് ഭൂഷൺ എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്

യുവ വോട്ടർമാരെ ആകർഷിക്കാനായി സമൂഹമാധൃമങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ്ട പ്രവർത്തനങ്ങൾ നടത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതിയിടുന്നു

ഇവയുടെ അടിസ്ഥാന സൌകര്യ വികസനം തൊഴിൽ അവസരം സുസ്ഥിരത്യാക്യിന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര പദ്ധതി

മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയതുമൂലം ആയിരക്കണക്കിന് യാത്രക്കാർ വിശാഖപട്ടണം പുരി ബാലസോർ റെയിൽവേസ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്

പ്രകൃതി ദുരന്ത നിവാരണത്തിന് ഓരോ പാർലമെന്റ് അംശ്ത്തിനും തദ്ദേശ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ സംഭാവന നൽകാമെന്ന് വ്യവസ്ഥയുണ്ട്

രാവിലെ ചവറയിൽ നിന്ന് ആരംഭിച്ച യാത്ര വൈകിട്ടോടെ കൊല്ലം നഗരത്തിൽ പ്രവേശിക്കും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ളയാണ് ജാഥ നയിക്കുന്നത് ഇന്ന് ചിന്നക്കടയിൽ പൊതുസമ്മേളനം നടക്കും നാളെ ചാത്തന്നൂരിലാണ് ജില്ലാതല സമാപനം മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ശിവശങ്കർ അമൃത് ഭാസ്കർ അജയ് എസ്

ഡി എഫിന് മുന്നേറ്റം

എഫ് വിജയിച്ചപ്പോൾ ആറിടത്ത് യൂ

ഡി

ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി പിടിച്ചെടുത്തു

ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത്

മഹേഷ് രാജിവച്ചു ഇന്നലെയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത് മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചെങ്കിലും ഗവൺമെന്റിനുള്ള പിന്തുണ തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു

പൊലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിന് പുറമേ നഗരത്തിൽ മറ്റ് പലയിടത്തും മോഷണം നടന്നതായി റിപ്പോർട്ടുണ്ട്

സ്മാർട്ട് സിറ്റി പദ്ധതിക്കുശേഷം കേരളത്തിലെ ഐ ടി മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത് പദ്ധതിയിലൂടെ കാൽ ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ

മോചനത്തിന് മുമ്പ് ജയിലിൽ ഗാന്ധിജിയുടെ സന്ദേശങ്ങളും ആശയങ്ങളും അടിസ്ഥാനമാക്കി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവത്ക്കരണ ക്ലാസുകൾ തടവുകാർക്കായി സംഘട്ടി പ്പിക്കും